ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു

മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട് ന്ട്രില്പിൽ വന്നു

എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വിവിപാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപ്പ്യോഗിക്കും

സംസ്ഥാനത്ത് മുന്നണികളും കക്ഷികളും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ തുടരുന്നു

ശിഖർ ധവാന് സെഞ്ച്വറി

രാജ്യത്ത് ഇന്ന് മുതൽ മാതൃക്കൂ ത്തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നു

വോട്ടിംഗ് മെഷീനുകൾക്ക് ജി

എസ് സംരക്ഷണം ഉറപ്പു വരുത്തും പരിസ്ഥിതി സൌഹൃദ പ്രചരണം കർശനമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ ഫലം അറിയാൻ കൃത്യം ഒരു മാസത്തെ ഇടവേളയാണുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈനികരുടെ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കരുതെന്ന് സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി

ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷൻമാർക്ക് കത്തയച്ചു

ലോക്സഭ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക നാളെയും മറ്റെന്നാളും ഡൽഹിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മറ്റി യോഗത്തിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ബിജെപി ബിജെപി സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ ബിജെപിയുടെ നിർണ്ണായക കോർ കമ്മിറ്റിയോഗം നാളെ ചേരും യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപമാകും നാല് ബിജെപി സംസ്ഥാന ജനറൽപ്പ് ്റ്സ്ക്രകട്ടറിമാർ നയിക്കുന്ന പരിവർത്തനയാത്ര ഇന്ന് സമാപിക്കും മിസോറാം ഗവർണർ പദവി രാജിവെച്ച് നാളെ തിരുവീജന്തപുരത്തെത്തുന്ന കുമ്മനം രാജശേഖരന് വലിയ വര്ദ്ധ്വേർപ്പ് നൽകാനാണ് ബിജെപി ജില്ലാ ഘടകത്തിന്റെ ത്രീരുമാനം സ്വീകരണപരിപാടിയോടെ കുമ്മനത്തിന്റെ തെരഞ്ഞ്ടുപ്പ് പ്രചാരണത്തിന് തുടക്കമാകും

ആലപ്പുഴ കളക്ട്രേറ്റിൽ നിന്ന് വീഡിയോ കോൺഫ്രൻസ് വഴിയാണ് നിർമാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് കേരളത്തിന്റെ ഗതാഗത ടൂറിസം മേഖലക്ക് അനന്യസാധ്യതകൾ നൽകുന്ന പദ്ധതിയാണ് തീരദേശഹൈവേ

സുധാകരൻ പറഞ്ഞു മലയോര ഹൈവേ മലയോര ഹൈവേയുടെ ഭാഗമായി കാസറഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് പാണത്തൂർ സംസ്ഥാന പാതയിലെ കോളിച്ചാലിൽ നിന്ന് ആരംഭിച്ച് ചെറുപുഴയിൽ അവസാനിക്കുന്ന റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഉദ്ഘ്ട്ട്ടനവും വീഡിയോ കോൺഫ്രൻസ് വഴി മന്ത്രി ജി

മീറ്റർ നീളത്തിലൂടെ റോഡിന്റെ പ്പികസനമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് മലയോര ഹൈവേയ്ക്ക്ടെ ഭാഗമായി നിർമിക്കുന്ന പ്രധാന റോഡാണിതെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി ചെന്നിത്തല മഹാത്മാ ഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിന് നൽകാനുള്ള വേതന കുടിശ്ശിക അടിയന്തിരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാന മന്ത്രി നരേന്ദ്ര മോദിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്തയച്ചു ആയിരത്തോളം കോടി രൂപയുടെ കുടിശ്ശിക വേതനം വിതരണം ചെയ്യുന്നതിന് ഉടൻ ഫണ്ട് അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ബിജി വർഗ്ഗീസ്

ജാഗ്രതാ നിർദ്ദേശം സൂര്യതാപം സൂര്യാഘാതം എന്നിവ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകരും കർഷകത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശിച്ചു

വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ പൊള്ളലേറ്റ് ചുവന്ന പാടുകളോ അസ്വഭാവിക ലക്ഷണങ്ങളോ പ്രകടമാകുകയാണെങ്കിൽ താമസിയാതെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

ശിഖർ ധവാന്റെ സെഞ്ചറിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്ത് പകർന്നത്

ഇന്ന് വിജയിച്ചാൽ പരമ്പര ഇന്ത്യയ്ക്ക് സ്വന്തമാകും

കേരളത്തിൽ നിന്ന് പ്രശസ്ത സംഗ്വീത്ജ്ഞ്ൻ കെ

ജയൻ അഭിനേതാവ് മോഹൻലാൽ ക്സ്വാമി വിശുദ്ധാനന്ദ ഐ എസ് ആർ ഒ മുൻ ശാസ്ത്രിജ്ഞൻ നമ്പി നാരായണൻ ആർക്കിയോളജി സർവ്വെഴു ആന്റ് ഇന്ത്യ മുൻ റീജിയണൽ ഡയറക്ടർ കെ പുരസ്കാരങ്ങൾക്ക് അർഹരായത് കേരള ബാങ്ക് കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അധികൃതരുമായി സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചൊവ്വാഴ്ച ചർച്ച നടത്തും മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ എൻ

ചെന്നിത്തല കേരളത്തിൽ സർവ്വകലാശാലാ നിയമം ഭേദഗതി ചെയ്ത് പുറപ്പെടുവിച്ച ഓർഡിനൻസ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല